ശബരിമലയിൽ സ്ത്രീകൾക്ക് ദർശനം നടത്താൻ രണ്ട് ന് ദിവസം നീക്കിവെയ്ക്കാമെന്ന് കേരള ഗവൺമെന്റ് ഹൈക്കോടതിയോട്

സെമിയിൽ സൈന നെഹ്വാൾ ഇന്ന് റുസേലി ഹർത്താവിനെ നേരിടും

ഒരു റിപ്പോർട്ട് മധ്യപ്രദേശിലും മിസോറാമിലും അവസാനവട്ട പ്രചാരണ പരിപാടികൾ ശക്തിപ്പെടുത്തി ബി

മധ്യപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ച്ചത്തർപൂർ മൺസോർ ജില്ലകളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് രാലികളെ അഭിസംബോധന ചെയ്യും മിസോറാമിൽ ഇന്നലെ ര്തരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത ശ്രീ നരേന്ദ്രമോദി എൻ

മിസോറാമും ആസാമും തമ്മിലുള്ള അതിർത്തി തർക്കം പരിഹരിക്കാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് അവർ ആവശ്യപ്പെട്ടു

ന്യൂസ്ഡെസ്ക് ആകാശവാണി

രാജസ്ഥാനിൽ മുഖ്യമന്ത്രി വസുന്ധര രാജ മുതിർന്ന ബി ജെ

നേതാക്കളായ പ്രകാശ് ജാവ്ദേക്കർ പീയുഷ് ഗോയൽ എന്നിവർ വിവിധ റാലികളിൽ പങ്കെടുക്കും കോൺഗ്രസിനു വേണ്ടി മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റ് എന്നിവർ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും രാജസ്ഥാനിലും തെലങ്കാനയിലും അടുത്ത മാസം ഏഴിനാണ് വോട്ടെടുപ്പ്

ഇന്നുതന്നെ വോട്ടെണ്ണൽ നടക്കും

ഏപ്രിലിൽ നടന്ന വുഹാൻ ഉച്ചകോടിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കിയത് സംബന്ധിച്ച വിലയിരുത്തലും നടത്തും

നാല് പേരടങ്ങിയ പരാതിക്കാരായിരുന്നു ഇന്നലെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ ഹാജരായത്

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ദാനിയേൽ ഇ

പേരാണ് മൂന്നു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ചെന്നൈയിൽ എത്തിയ സംഘം ഗജ ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ച തിരുച്ചിറപ്പള്ളി സന്ദർശിക്കും തുടർന്ന് തിങ്കളാഴ്ച വീണ്ടും മുഖ്യമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തുന്ന സംഘം അന്ന് വൈകിട്ട് പുറപ്പെടും

ഇരു രാജ്യങ്ങളും തമ്മിലുളള ബന്ധം മെച്ചപ്പെടുത്തുന്നത് സ്ട്ബന്ധിച്ച ചർച്ചകളാണ് അദ്ദേഹത്തിന്റെ സന്ദർശന ലക്ഷ്യര് തിങ്ക്ളാഴ്ച വിദേശകാര്യ മന്ത്രി സുഷമ സ്വരാജുമായി ശ്രീ അബ്ദുല്ല ഷഹീദ് ചർച്ച നടത്തും

ക്രമസമാധാനം നിലനിർത്താൻ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളതായി ഡി ജി

സംസ്ഥാന പോലീസിന് പുറമെ കേന്ദ്ര സേനയെയും സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്

ഇന്നലെയാണ് ഒൻപതിനായിരം പേജോളം വരുന്ന ചാർജ്ജ് ഷീറ്റ് ബംഗളൂരുവിലെ പ്രിൻസിപ്പിൾ സിവിൽ കോടതിയിൽ സമർപ്പിച്ചത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ അഞ്ചിനാണ് ബംഗ്ലൂരിവിലെ സ്വന്തം വസതിയുടെ മുന്നിൽ വച്ച് ഗൌരീ ലങ്കേഷ് വെടിയേറ്റ് മരിച്ചത്

കേരളം പോലെ നിരന്തരം മഴ പെയ്യുന്ന സംസ്ഥാനങ്ങൾക്കാണ് സംവിധാനം കൂടുതലും പ്രയോജനപ്പെടുക ന്യൂഡൽഹിയിലെ ശാസ്ത്ര പരിസ്ഥിതി കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ജനറൽ കെ

രമേഷാണ് ഇക്കാര്യം അറിയിച്ചത്

കര വ്യോമസേനകളുടെ സംയുക്ത ദൌത്യ സഘ്യമാണ് ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ പങ്കെടുത്തതെന്ന് ഫ്രഞ്ച് അധികൃതർ അറിയിച്ചു അൽ ഖയ്തയുമായി ബന്ധമുള്ള കതീബത് മക്കിന എന്ന തീവ്രവാദി സംഘടനയിൽപെട്ടവരാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെയും മാലിയിൽ മൂവായിരത്തോളം ഫ്രഞ്ച് സൈനികരാണ് സേവനം അനുഷ്ഠിക്കുന്നത്

കഴിഞ്ഞ മാസമാണ് പദ്ധതിയുടെ പ്രാരംഭ നടപടി ഊർജ്ജിതപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് ഇരു രാഷ്ട്രങ്ങളും എത്തിയത് ഒരു മാസത്തെ അനിശ്ചിത്ത്തിനൊടുവിൽ യു

ഇരു രാഷ്ട്രങ്ങളും തമ്മീലുള്ള സഹകരണത്തിന്റെ പുതിയ ചുവടുവയ്പ്പായാണ് ഈ പദ്ധതിയെ ലോകം ഉറ്റുനോക്കുന്നത്

വെള്ളിയാഴ്ചത്തെ നമസ്കാരത്തിനായി വിശ്വാസികൾ ആരാധനാലയത്തിൽ ഒത്തുകൂടിയപ്പോഴാണ് സ്ഫോടനമുണ്ടായത്

നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് അപ്രതീക്ഷിത പരാജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയത്

ഐഎസ്എൽ അഞ്ചാം പതിപ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ തുടർച്ചയായ മൂന്നാം തോൽവിയാണിത്

നോർത്ത് ഈസ്റ്റിന്റെ സ്വന്തം മൈതാനമായ ഗുവാഹത്തിയിൽ അവർ ആവേശത്തോടെയാണ് കളിച്ചതെങ്കിലും ബ്ലാസ്റ്റേഴ്സിനെ കുലുക്കാനായില്ല

എന്നിട്ടും തുടർച്ചയായ ഏഴാം മത്സത്തിലും വിജയം തൊടാനാവാതെ മഞ്ഞപ്പട മടങ്ങേണ്ടിവന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ത്യൻ താരം സമീർ വർമ്മയുടെ എതിരാളി ഇന്തോനേഷ്യയുടെ ചിക്കോ ഓറയാണ് അതേസമയം ഇന്ന് വനിതാ ഡബിൾസ് പുരുഷ വിഭാഗം ഡബിൾസ് മിക്സഡ് ഡബിൾസ് എന്നീ പോരാട്ടങ്ങളും നടക്കും

ഇൻഡ്യൻ താരങ്ങളായ ഹർമൻ പ്രീത് സിംഗ് ലളിത് ഉപാധ്യ ദിൽപ്രീത് നിളകാന്ത ശർമ്മ ഹാർദ്ദിക് സിംഗ് എന്നിവരാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഗോൾ സ്വന്തമാക്കിയത് നാളെ നടക്കുന്ന മത്സരത്തിൽ സ്പെയിനാണ് ഇന്ത്യയുടെ എതിരാളി അടുത്ത മാസം ആറിനാണ് ലോകകപ്പ് ഫൈനൽ

ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ നടക്കുന്ന ഫൈനൽ മൽസരത്തിലും മേരി കോം ഉക്രയിനിന്റെ ഹന്ന ഒക്കോട്ടയെ നേരിടും മുന്ന് മാസത്തിനിടെ ഉക്രയിനുമായി മേരിക്കോമിന്റെ രണ്ടാമത്തെ ഏറ്റുമുട്ടലാണിത്